ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും ഡൽഹിയിൽ സ്സമരം നടത്തുന്ന കർഷകരുമായി കേന്ദ്രമന്ത്രിമാരുടെ ് ഉന്നതതല സമിതി നടത്തുന്ന അഞ്ചാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു

സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം ഇന്നും നാളെയും കടൽ പ്രക്ഷുബ്ധമാകുമെന്ന് മുന്നറിയിപ്പ്

എസ് എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഇൌസ്റ്റ് യുണൈറ്റഡ് ബംഗാൾ പോരാട്ടം

ചികിത്സയിലുള്ളത്

കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലകളിൽ ഈ മാസം എട്ടിനാണ് വോട്ടെടുപ്പ് ്നടക്കുന്നത്

വോട്ടെടുപ്പിനുള്ള കോവിഡ് പ്രോട്ടോക്കോളിന്റെ ഭാഗമായി പോളിങ് ബൂത്തുകളെല്ലാം മറ്റുന്നാൾ അണുവിമുക്തമാക്കും ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽനിന്നു പോളിങ് സാമഗ്രികളുടെ വിതരണവും മറ്റന്നാൾ ആരംഭിക്കും

മൂന്ന് മുന്നണികളുടെയും പ്രചരണ പരിപാടികൾക്ക് കോവിഡ് സാഹചര്യം തടസ്സമായിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി അലപ്പുഴ പ്രതിനിധി ആർ

ഡി എഫ് സംഘടിപ്പിച്ച വെബ് റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു

ഡി എഫിനു് ബി ജെ

കോവിഡ് പശ്ചാത്തലത്തിൽ റാലികളും പ്പൊതുയോഗങ്ങളും നടത്താനാവാത്ത സാഹചര്യം പരിണഗണിച്ചാണ് ്വെബ് റാലി സംഘടിപ്പിച്ചത്

ഡി എഫ്

ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് ഭയന്ന് എൽ

എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സുരേന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാത്തതിനെതിരെ ബി ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്ന് അദ്ദേഹം ആരോപിച്ചു തൃശൂർ പ്രസ് ക്ലബ്ബിന്റെ മുഖാമുഖം പരിപാടിയിൽ സെംസാരിക്കുകയായിരുന്നു ശ്രീ

സുരേന്ദ്രൻ

കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിങ്ങ് തോമറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ സംഘം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നു ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന നാൽപതോളം കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായാണ് ചർച്ച നടക്കുന്നത്

ഭാരത് ഹർത്താലിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഐക്യുദാർഢ്യ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകള്ള ഒഴിവാക്കിയിട്ടുണ്ട്

ബി തിരുവനന്തപുരത്തെ രാജീവ്ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ക്യാമ്പസിന് ഗോൾവാൾക്കർ സെന്റർ എന്ന് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദം കടുക്കുന്നു തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി രണ്ടാമത്തെ കൃാമ്പസിനും രാജീവ് ഗാന്ധിയുടെ പേര് തന്നെ നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു ശശി തരൂർ എം പി കോൺഗ്രസ് നേതാവ് വി

സുധീരൻ ്സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം

ബേബി തുടങ്ങിയവരും തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നു

തമിഴ്നാട് രാമനാഥപുരത്തിന് സമീപം വച്ച് ന്യൂനമർദമായി മാറിയ കാറ്റ് മാന്നാർ കടലിടുക്കിൽ തന്നെ തുടരുകയാണ് മഴ കേരളത്തിൽ അതിശക്തമായ പ്ര മഴ്യ്ക്ക് സാധ്യത

തിരുവനന്തപുരം ഉൾപ്പെട്ടെ ആറ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട് പത്തനംതിട്ടു എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ നാളെ അരിശുക്തമായ മഴയ്ക്ക് സാധൃതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തീന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയും കടൽ അതിപ്രക്ഷുബ്ധമാകാൻ സാധൃതയുള്ളതിനാൽ കേരളതീരത്തു നിന്നും കടലിൽ പോകുന്നതിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്

എൽ ഐഎസ് എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നേരിടും

ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയിരുന്നു

ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി ചുഴലിക്കാറ്റ് ഏറെ നാശം വിതച്ച ജില്ലകളിൽ സന്ദർശനം നടത്തുന്ന സംഘം ചൊവ്വാഴ്ചയോടെ മടങ്ങും